പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പ്ര്ധാനമന്ത്രി യോഗം വിളിച്ചു ചേർത്തു

സംവിധാനങ്ങൾ ഒരുക്കി ഈ മേഖലയിൽ ഇന്ത്യ നിർണായക സ്ഥാനഖ്ത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ

എസ് എൽ

മുംബൈ സിറ്റിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടും

കോവിഡ് മഹാമാരിയിൽ നിന്ന് സ്ഥായിയായ മോചനം എന്നതായിരിക്കും ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാവിഷയം മഹാമാരിക്കെതിരായ തയ്യാറെടുപ്പുകളും തൊഴിൽ പുനഃസ്ഥാപിക്കുന്നതിന് മാർഗങ്ങളും ഉച്ചകോടിയിൽ നേതാക്കൾ ചർച്ച ചെയ്യും

ചടങ്ങിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും പങ്കെടുത്തു

വാക്സിൻ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞർ അക്കാദമിക് വിദഗ്ധർ ഫാർമ കമ്പനികൾ സംരംഭകർ എന്നിവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

ബംഗ്ലാദേശ് മ്യാന്മാർ ഖത്തർ ഭുട്ടാൻ സ്വിറ്റ്സർലൻഡ് ബഹ്റൈൻ ഓസ്ട്രിയ സൌത്ത് കൊറിയ തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഇന്ത്യയുമായി വാക്സിൻ നിർമാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും തുടർന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാക്സിൻ ഉപയോഗിക്കാനും താല്പരൂര് പ്രകടിപ്പിച്ചിട്ടുണ്ട്

വാക്സിൻ സൂക്ഷിക്കാനുള്ള ശീതീകരണ സംവിധാനം ഏർപ്പെടുത്തൽ വാക്സിൻ നൽകാനുള്ള സിറിഞ്ച് സൂചി എന്നിവയുടെ സംഭരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്

വാക്സിൻ ഗവേഷണ നിർമ്മാണപ്രവർത്തനങ്ങളിൽ അന്താരാഷ്ട്ര മാനദണ്ഡം ഉറപ്പുവരുത്തുന്നതിന് ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി

വാക്സിൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതിനുള്ള സംവിധാനത്തെ പറ്റി വിശദമായി വിലയിരുത്തിയ പ്രധാനമന്ത്രി ഇതിന് സമയബന്ധിതമായ പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കാൻ നിർദേശം നൽകി

മൂന്നാം ഘട്ട പരീക്ഷണങ്ങൾക്ക് ശേഷം വാക്സിൻ ഉപയോഗത്തിനുള്ള അനുമതി നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി മുൻഗണന തത്വങ്ങളുട്ടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഓരോ പ്രദേശത്തുള്ള പൌരനും വാക്സിൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എല്ലാ നടപടികളും യഥാസമയം സ്വീകരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു

ഇതിനെ തുടർന്ന് ലോകത്തെ പ്രമുഖ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാരൃം വൃക്തമാക്കിയത്

ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്നു നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുംബൈ സിറ്റി എഫ്

യും തമ്മിൽ ഏറ്റുമുട്ടും

ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് എ

കെ ബഗാൻ വിജയിച്ചു

ഒഡിഷയില്ല അഞ്ച് ബ്ളോക്കുകളിലേയും എട്ട് ജില്ലകളിലേയും ഭൂഗർഭ സർവേ നടത്തുന്ന ജോലികളും ഇതിന്റെ ഭാഗമായുണ്ട് മഹാനദിയിലും സമീപ പ്രദേശങ്ങളിലുമാണ് പ്രധാനമായും പ്രവർത്തനങ്ങൾ നടക്കുക ഈ മേഖലയിൽ നിന്ന് എണ്ണയും പ്രകൃതി വാതകവും ലഭിക്കുന്ന സ്ഥിതി സംജാതമാകുന്നതോടെ ഒഡീഷ വികസനത്തിന്റെ പാതയിലേക്ക് കുതിക്കുമെന്ന് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി

ഇതിനായി കർണാടക ഡിജിറ്റൽ എക്കണോമി മിഷൻ രൂപീകരിക്കുമെന്നും ഏഴായിരത്തോളം സ്റ്റാർട്ടപ്പുകൾ ഇ കൊമേഴ്സ് കമ്പനികൾ എന്നിവർക്ക് വേണ്ട പ്രോർസാഹനം നൽകുമെന്നും കർണാടക ഉപ മുഖ്യമന്ത്രി പറഞ്ഞു

നഗരപ്രാന്തപ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ തീയിടുന്നതും തണുത്ത കാറ്റും മറ്റു പ്രാദേശിക ഘടകങ്ങളുമാണ് ഇതിനു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്

അവശ്യസേവനങ്ങളൊഴികെ മറ്റെല്ലാ സംവിധാനങ്ങളും ഇവിടെ തിങ്കളാഴ്ച മുതൽ നിർത്തി വയ്ക്കും താപനില കുറയുന്നതും ദിനംപ്രതിയുള്ള രോഗികളുടെ വർധനയുമാണ് നടപടിക്കു കാരണം